കോഴിക്കോട് ആനക്കാഹ്പൊയിലിൽ ഉരുൾപൊട്ടി സംസ്ഥാനത്ത് ഊർജ്ജകേരളമിഷന് ഇന്ന് തുടക്കം അഞ്ച് പദ്ധതികളുടെ പ്രഖ്യാപനം മുഖ്യമിന്തി തിരുവന്തപുരത്ത് നിർവഹിക്കും വ്യവസായശാലകളിലെ തൊഴിൽജന്യരോഗങ്ങളുടെ കാരണ ങ്ങൾ കണ്ടെത്തി തടയാൻ ഫാക്ടറി നിയമം ഭേദഗതി വരു ത്തുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പൊതുമേഖലാ കശുവണ്ടി ഫാക്ടറികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിഅമ്മ അറിയി ച്ചും ലോകം ഇനി ഫുട്ബോൾ ആരവത്തിൽ ലോകകപ്പ് മാമാ ങ്കത്തിന് വൈകീട്ട് റഷ്യയിൽ കിക്ക്ഓഫ്

കണ്ണൂരിലും പത്തനംതിട്ടയിലുമായി നാലു പേർ കൂടി മരിച്ചു

ഇടുക്കി വയനാട് കോഴി ക്കോട് ജില്ലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും രൂക്ഷമാ ണ് കോഴിക്കോട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മല യോര മേഖലയായ ആനക്കാംപൊയിലിലും താമരശ്ശേരി കരിഞ്ചോ ലയിലും ഉരുൾപൊട്ടി

മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കൂടരഞ്ഞി തിരുവനമ്പാ ടി കാരശ്ശേരി കോടഞ്ചേരി പഞ്ചായത്തുകളിൽ ക്വാറികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ചതായി ജില്ലാകലക്ടർ യു വി ജോസ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയിൽ എട്ടവ്ണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ ഇന്നലെ രാത്രി ശക്തമായ ഉരുൾപ്പൊട്ടലുണ്ടായി

ജില്ലയുടെ മലയോര മേഖലകളിൽ പിലയിട്ടങ്ങളിലും ഉരുൾപൊ ട്ടാൻ സാധ്യതയുളളതിനാൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് കനത്തമഴയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കൊണ്ടോ ട്ടി ഏറനാട് താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളജുകൾ ഒഴി കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാകലക്ടർ അവധി പ്രഖ്യാ പിച്ചു നിലമ്പൂർ ആഡ്യൻപാറ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം താറുമാറായി ശ്യക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് വൈദ്യുതി ഉത്പാ ദനം നിർത്തിവെച്ചിരിക്കുകയാണ് കാഞ്ഞിരപ്പുഴയിൽ ജലമൊഴുക്ക് കുത്തനെ വർധിച്ചതോടെ ആഢ്യൻപാറ പദ്ധതി പ്രദേശത്തെ തുര ങ്കത്തിന് മുൻപിലെ തടയണ കവിഞ്ഞൊഴുകുകയാണ് കണ്ണൂർ ജില്ലയിൽ മഴ വീണ്ടും ശകതമായി മൂന്നു ദിവസമായി അൽപം വിട്ടു നിന്ന മഴ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ശ ക്തി പ്രാപിച്ചത് ശക്തമായ കാറ്റും വീശുന്നുണ്ട് മലയോര മേഖലയിൽ താമസി ക്കുന്നവർ ആശങ്കയിലാണ് കർണാടക വനാതിർത്തിയിലുണ്ടായ ഉരുൾപൊട്ടലിനെതുടർന്നുണ്ടായ മലവെള്ള പാച്ചിലിലും ഉരുൾപൊ ട്ടലിലും മലയോര മേഖലയിലെ സാധാരണ ജീവിതം തടസ്സപ്പെട്ടു മാക്കൂട്ടത്ത് ഉരുൾപൊട്ടലിൽ മരിച്ച ഇരിട്ടി കുന്നോത്ത് സ്വദേശി ശ രത്തിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും

പി സ്കൂളി ലേക്ക് മാറ്റി

കല്ലടിക്കോട് മണ്ണാർക്കാട് പാലക്കയം മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി

അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ കോന്നാർ തുരുത്തിൽ കുടുങ്ങിയ ദമ്പതികളെ രക്ഷിച്ചു പ്റളി കൽപ്പാത്തി പുഴയിൽ ഒഴുക്കിൽപെട്ട യുവാവിനെ കണ്ടെത്താൻ തിരച്ചിൽ ഇന്നും തുടരും പത്തനാതിട്ടൂജില്ലയിൽ കാലവർഷക്കെടുതിയിൽ ഇതുവരെ പത്ത് ലക്ഷത്തോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി പ്രിൻസിപ്പൽ കൃഷിഓഫീസർ അറിയിച്ചു പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്

ജില്ലയിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി അർഹമായ ധനസഹായം ലഭ്യമാക്കുതിന് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ ജില്ലാകലക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കിഴക്കൻ മലവെളളത്തിന്റെ വരവ് ശക്തമായതോടെ കുട്ടനാ ട്ടിൽ ജലനിരപ്പ് ഉയർന്നു എടത്വ തലവടി മുട്ടാർ പുളിങ്കുന്ന് കൈനകരി എന്നീ പഞ്ചായത്തുകളിൽ നിരവധി വീടുകൾ വെളള ത്തിലാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉൾപ്പെടെ കുട്ടനാട്ടിലെ റോഡുകളും വെളളത്തിലായി ഇന്ന് ജില്ലയിൽ ചേർത്തല അമ്പ ലപ്പുഴ കുട്ടനാട് കാർത്തികപ്പളളി താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചു കനത്തമഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷ ണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്കും ജില്ലാകലക്ടർ ഇന്ന് അവധി പ്രഖ്യാപ്പിച്ചു

പ്രതികൂല കാലാവസ്ഥ മൂലം പ്രവേശന നടപടികൾ കാര്യ ക്ഷമമായി നടത്താൻ കഴിയാതിരുന്ന ഇടു്ക്കി കോട്ടയം എറണാ കുളം പാലക്കാട് ജില്ലകളിൽ ഹ്യർ സെക്കൻ്ററി ആദ്യ അലോ ട്ട്മെന്റ് അനുസരിച്ച് പ്രവേശ്നം നേടാൻ സമയപരിധി ഇന്ന് വൈകിട്ട് നാല് വരെ ദീർഘിപ്പിച്ചു സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അടുത്ത് മൂന്ന് വർഷത്തിനകം നടപ്പാക്കുന്ന അഞ്ച് പദ്ധ തികളടങ്ങിയ ഊർജ്ജകേരള മിഷന് ഇന്ന് തുടക്കം തിരുവനന്ത പുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ പ്രഖ്യാപനം നിർവ്വഹിക്കും

മൂന്ന് വർഷത്തിനകം സൌരോർജ്ജത്തിൽ നിന്ന് ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിടുന്നതാണ് സൌരപ ദ്ധതി

വ്യവസായശാലകളിലെ തൊഴിൽജന്യ രോഗങ്ങളുടെ കാരണ ങ്ങൾ കണ്ടെത്തി തടയുന്നതിന് ഫാക്ടറി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ടി പ്പി ്രാമകൃഷ്ണൻ പറഞ്ഞു ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിന്റെ വെബ് അധിഷ്ഠിത പരിശോധനാ സംവിധാനം തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികൾക്ക് പരമാവധി തൊഴിൽദിനങ്ങൾ ഉറപ്പാക്കി പൊതുമേഖലാ കശുവണ്ടി ഫാക്ടറികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി ജെ

കശുവണ്ടി വികസന കോർപ്റേഷന്റെ ഉത്പന്നങ്ങളുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് സുംവിധാനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇനിയൊരു മാസക്കാലം ഫുട്ബോൾ പ്രേമികളുടെ കണ്ണും കാതും പന്തോളം ചുരുങ്ങുന്ന നാളുകളാണ്

കൊല്ലം ജില്ലാപഞ്ചായത്തിന് ഒന്നാം സ്ഥാനവും കാസർകോട് ജില്ലാപഞ്ചായത്തിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു പുതുതായി അനുവദിച്ച വടകര റവന്യൂ ഡിവിഷൻ ഇന്ന് രാവിലെ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെട്ടിട കൈമാറ്റം മന്ത്രി ജി സുധാകരൻ നിർവ്വഹിക്കും താലൂക്ക് ഓഫീസ് മന്ദിരം മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കൊച്ചി തീരത്ത് ചരക്കു കപ്പലിന് തീ പിടിച്ച് ഗുരുതരമായ പരി ക്കേറ്റ കപ്പൽ ജീവനക്കാരൻ യോഗേഷ് കഞ്ചി സോളങ്കി മരിച്ചു എം വി നളിനി എന്ന കപ്പലിനാണ് തീ പിടിച്ചത് ആലപ്പുഴയിൽ മുഹമ്മ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ യോഗ ഗ്രാമ മായി ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് നടക്കുന്ന സമ്മേളനം കേന്ദ്രമന്ത്രി ശ്രീപദ് യശോനായിക് ഉദ്ഘാടനം ചെയ്യും എസ്എസ്എൽസി സേ ഫലം പ്രസിദ്ധീകരിച്ചു പ്രീക്ഷാഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭിക്കും രാജസഭാസീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നൃത്തിൽ പ്രതിഷേധിച്ച് എറ ണാകുളം ഡിസിസി ഓഫീസിന് മുന്നിൽ ശ്വപ്പെട്ടിയും റീത്തും വെച്ച സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു കെഎസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അ്നൂപ് ഇട്ടൻ സബീർ മുട്ടം ആലുവ മണ്ഡലം സെക്രട്ടറി മുജീബ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് പൊ്ലീസിന് ലഭിച്ച പരാതിയുടെ അടി സ്ഥാനത്തിലാണ് അറസ്റ്റ് വരാപ്പുഴയിൽ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തെ തുടർന്ന് നട ത്തിയ ഹർത്താലിൽ ഉണ്ടായ ആക്രമണങ്ങൾക്കെതിരെ നടക്കുന്ന അന്വേഷണം ജില്ലാ പൊലീസ് മേധാവി ഏറ്റെടുക്കണമെന്ന് ന്യൂന പക്ഷ കമ്മീഷൻ അധ്യക്ഷൻ പി കെ ഹനീഫ ഉത്തരവിട്ടു അന്വേ ഷണ റിപ്പോർട്ട് ഉടൻ ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിക്കണ മെന്നും ആലുവയിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ഉത്തരവിട്ടു നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് കാൽസ്യം ക്ളോറൈഡ് കലർന്ന മലിനജലം ഒഴുക്കുന്നതു മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൈക്കൊണ്ട നടപടിക ളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം വിലയിരുത്തി കുടിവെളളത്തിന് സമീപവാസികൾ പ്രധാനമായും ആശ്രയി ക്കുന്ന പുഴ മലിനമാക്കുന്നത് ജനങ്ങളുടെ കുടിവെളളത്തെ ബാധി ക്കുന്നുണ്ട് കാസർകോട് ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ഡെങ്കിപ്പനി വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഈഡിസ് വിഭാഗത്തിൽ പെട്ട കൊതുകു കൾ പരത്തുന്ന ഡെങ്കിപ്പനി ഒരുവതണ വന്നവർക്ക് വീണ്ടും വന്നാൽ മാരകമാകുമെന്നും ഡിഎംഒ പറഞ്ഞു ഓണത്തിന് ആവശ്യമായ പൂക്കൾ ജില്ലയിൽ തന്നെ ഉൽപ്പാദി പ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരം ഭിച്ച പൂക്കാലം വരവായി പദ്ധതിക്ക് തുടക്കമായി

സാമൂഹിക മാധ്യമങ്ങളിലൂടെ പടരുന്ന വ്യാജവാർത്തകൾക്കെ തിരെ വിദ്യാർഥികൾക്കിടയിൽ ബോധ്യപ്പത്കരണ പരിപാടിക്ക് ക ണ്ണൂർ ജില്ലയിൽ തുടക്കമായി സ്തൃമ്മേവ ജയതേ എന്ന പേരിൽ ജില്ലാ ഭരണകൂടവും ജില്ലാപഞ്ചായ്ത്തും ചേർന്നാണ് പരിപാടി ന ടത്തുന്നത് സ്കൂൾ വാഹന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതി നായി മോട്ടോർ വാഹന് വ്കുപ്പ് കൊല്ലംജില്ലയിൽ പരിശോധന കർശനമാക്കി